രണ്ട് വർഷത്തേക്ക് ദേശ്രീയപാതാ വികസനത്തിന്റെ തുടർനടപടികൾ അസാധ്യമാകുമെന്നും മുഖ്യമന്ത്രി

വി പാറ്റ് വിധി പുനഃപരിശോധിക്കണമെന്ന പ്രതിപക്ഷ ഹരജി സുപ്രീംകോടതി തള്ളി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സമയപരിധി നീട്ടുന്ന തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കട ന്നപ്പള്ളി

ൾ ൽ ൾ സംസ്ഥാനത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സ്വീകരിച്ച പുതിയ നിലപാട് സംസ്ഥാനത്തിന്റെ വികസ നത്തെ തടയുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റ പ്പെടുത്തി സംസ്ഥാനത്തിന്റെ ചിരകാല അഭിലാഷത്തിന്റെ ചിറ കരിയുന്നതാണ് കേന്ദ്രനടപടിയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്രഗവൺമെന്റ് നടപടി മൂലം രണ്ട് വർഷത്തേക്ക് ദേശീയപാതാ വികസനത്തിന് തുടർന ടപടികൾ അസാധ്യമാക്കുന്ന സ്ഥിതിവിശേഷ്ടം സംജാതമാ യെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ശേഷി ക്കുന്ന രണ്ട് വർഷം ദേശീയപാതാ വികസനത്തിന് കേന്ദ്രഗ വൺമെന്റ് തടസ്സം നിൽക്കുകയാണ് ദേശീയപാതാ വികസന ത്തിനായി പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കാൻ അവകാശമുണ്ട് വികസനത്തെ രാഷ്ട്രീയമായി തടസ്സപ്പെടുത്താൻ ബിജെപി കീഴാറ്റൂരിലും ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പിണറായി പറഞ്ഞു സ്ഥലം ഏറ്റെടുക്കലിൽ മുന്നേറിയപ്പോഴാണ് ദേശീയപാതാ വികസനം തടയുന്ന നിർദേശം വന്നിരിക്കുന്നത്

ദേശീയപാതാ വികസനത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഗവൺമെന്റ് ചെയ്തി ട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഇത്തരം സംഘടനകൾ രാജ്യത്തിന് തന്നെ ബാധൃതയാണെന്നും പിണറായി പറഞ്ഞു

റോഡുകളും പാലങ്ങളും ജലഗതാഗതവും ഇതിനായി മെച്ചപ്പെടുത്തണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാതയാണെന്നും പിണറായി പറഞ്ഞു ഉൽപാദന വർധ നക്കായി സ്വകാര്യ മൂലധനം ഉപയോഗിക്കുന്നതും ഗവൺമെന്റ് ലക്ഷ്യമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രാദേശിക കക്ഷികൾ ഓരോ സംസ്ഥാനത്തിന്റെയും വിക സന കാര്യത്തിൽ ഒരുമിച്ചു നിൽക്കണമെന്നും ഫെഡറൽ സംവി ധാനത്തെ ഹനിക്കുംവിധം പെരുമാറുന്ന കേന്ദ്രഗവൺമെന്റ് നില പാടിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ച യിൽ പറഞ്ഞതായി മുഖ്യമന്ത്രി വെളിപ്പെടുത്തി കേന്ദ്രത്തിൽ ബിജെപിക്കും കോൺഗ്രസിനും ഭൂരിപക്ഷം കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇത് സംബന്ധിച്ച ശുപാർശ ഗവർണർക്ക് കൈമാറും

വി

വി പാറ്റ് സ്ളിപ്പുകൾ എണ്ണേണ്ടതില്ല എന്ന ഏപ്രിൽ എട്ടിലെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യ പ്പെട്ട് ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലാണ് ഹരജി നൽകിയത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് ബൂത്തുകളിലെ വി വി പാറ്റ് യന്ത്രങ്ങളിലെ സ്ളിപ്പുകൾ എണ്ണാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസ് ബൂത്ത് പിടിച്ചെടുത്തെന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ ആരോ പണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി

ബിജെപിക്ക് വോട്ട് ചെയ്യാനെത്തിയ തന്നെ പോളിങ് ഉദ്യോ ഗസ്ഥർ നിർബന്ധിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യിച്ചെന്ന് ഒരു പ്രായമായ സ്ത്രീ പറയുന്നതാണ് സ്മൃതി ട്വീറ്റ് ചെയ്ത വീഡി യോയിൽ ഉണ്ടായിരുന്നത്

വെങ്കടേശ്വർ പറഞ്ഞു പൊലീസിലെ പോസ്റ്റൽ വോട്ട് വിവാദത്തിൽ കർശന നട പടി വേണമെന്ന് ഡി ജി

ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഡിജിപി അന്വേഷണത്തിന് ശുപാർശ നൽകിയത് എല്ലാ ജില്ലക ളിലും വിശദമായി അന്വേഷണം നടത്തണമെന്നും ഡി ജി

ഏതന്വേഷണം വേണമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീ സർക്ക് തീരുമാനിക്കാമെന്ന് ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു

രാഘവൻ എം

ക്കെതിരായ ഒളികാമറ വിവാദവു മായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ഡിവൈഎഫ്ഐ അഖി ലേന്ത്യാ പ്രസിഡണ്ട് പി

മുഹമ്മദ് റിയാസിൽ നിന്ന് മൊഴിയെ ടുത്തു കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണറാണ് മൊഴി രേഖപ്പെടുത്തിയത് എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോ ഗസ്ഥനെ അറിയിച്ചിട്ടുണ്ടെന്നും തെളിവുകൾ നേരത്തെ ഹാജരാ ക്കിയിട്ടു ണ്ടെന്നും മൊഴിയെടുത്ത ശേഷം റിയാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സമയപരിധി നീട്ടുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തിരു വനന്തപുരത്ത് അറിയിച്ചു ഇതിനായി ഉന്നതതല യോഗം വിളി ച്ചുചേർക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡിസംബറിൽ പണി പൂർത്തി യാക്കണമെന്നാണ് കരാർ എന്നാൽ കരിങ്കല്ല് ക്ഷാമത്തെക്കുറിച്ച് അദാനി ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്നും സമയം നീട്ടി നൽകാൻ അവർ ആവശ്യപ്പെട്ടെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു

ചെന്നൈയിൽ നടക്കുന്ന ഒന്നാം കാളിഫയർ മത്സരത്തിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനക്കാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്ങ്സും ഏറ്റുമുട്ടും ഐപിഎൽ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ ടീമുകളാണ് ചെന്നൈ സൂപ്പർകിങ്ങ്സും മുംബൈ ഇന്ത്യൻസും

ഇന്ന് ജയിക്കുന്നവർ ഞായറാഴ്ച്ച നടക്കുന്ന ഫൈനലിൽ കളിക്കാൻ യോഗ്യത നേടും

തിരുവമ്പാടി തമ്പലമണ്ണ സബ്സ്റ്റേഷനിൽ നിന്ന് മുക്കം തൂങ്ങംപുറം സബ്സ് റ്റേഷനിലേക്ക് ഭൂമിയ് ക്കടിയിലൂടെ വൈദ്യുതിയെത്തിക്കുന്നതിന് നിർമാണ പ്രവൃത്തികൾ ആരംഭിച്ചു

ഉറുമി ചെമ്പുകടവ് പതങ്കയം ആനക്കാംപൊയിൽ നിലയങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി തമ്പലമണ്ണ സബ്സ്റ്റേഷനിലെത്തിക്കും ഇവിടെ നിന്നും ഭൂമിക്കടിയിലൂടെ സ്ഥാപിച്ച കേബിളുകൾ വഴി തൂങ്ങംപുറം സബ്സ് റ്റേഷനിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ജൂൺ പകുതിയോടെ പദ്ധതി പൂർത്തിയാക്കും

ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വൈദ്യുതി തടസപ്പെടുന്നത് ഇല്ലാതാക്കാനും പുതിയ മാർഗം സഹായകരമാകുമെന്ന് അധികൃതർ അറിയിച്ചു പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോ ജനകരമായ രീതിയിൽ കൺസ്യൂമർഫെഡ് ആരംഭിക്കുന്ന സ്റ്റുഡന്റ്സ് മാർക്കറ്റുകൾക്ക് തുടക്കമായി സംസ്ഥാനത്താകെ സഹകരണസംഘങ്ങൾ മുഖേനയും ത്രിവേണികൾ മുഖേനയും അറുനൂറോളം സ്റ്റുഡന്റ് സ് മാർക്കറ്റുകളാണ് ആരംഭിക്കുന്നത്

എസ്എസ്എൽസി പുനർമൂല്യനിർണയത്തിന് അപേക്ഷകൾ ഇന്ന് മുതൽ വെള്ളിയാഴ്ച്ച വരെ ഓൺലൈനായി നൽകാം സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയുടെ അപേ ക്ഷയും ഇന്ന് മുതലാണ് നൽകേണ്ടത്

എസ്എസ്എൽസി പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ കോഴിക്കോട് റവന്യൂ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെ ടുപ്പിച്ച് പ്രതിഭാ സംഗമവും അനുമോദനയോഗവും ഉപഹാര സമർപ്പണവും നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അറിയിച്ചു

കൊല്ലത്ത് മഴക്കാല പൂർവ ശുചീകരണം ആരോഗൃ ജാഗ്രത ജില്ലാതല ആലോചനാ യോഗത്തിൽ അധൃക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി

യാത്രക്കാരെ മർദ്ദിച്ച് സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവെടു പ്പിന് ഹാജരാകാൻ കല്ലട ട്രാൻസ്പോർട്ട് ഉടമ സുരേഷിനും രണ്ട് ഡ്രൈവർമാർക്കും എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ നോട്ടീസ് നൽകി അഞ്ച് ദിവസത്തിനകം ഹാജരാ കാനാണ് നിർദേശം

ജി

ശൈലേന്ദ്രബാബു ചെന്നൈയിൽ അറിയിച്ചു

ഫോനി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ട്രെയിനു കൾ കൂടി റദ്ദാക്കിയതായി റെയിൽവെ അറിയിച്ചു